കോൺഗ്രസ്സ് നേതാവ് അഹമ്മദ് പട്ടേൽ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി

ശക്തമായ നിലയിൽ ഇരട്ട സെഞ്ചറി പ്രതീക്ഷയിൽ ചേതേശ്വർ പൂജാര

സി ഐ

ധനമഞ്ചൂരി യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മവും ശ്രീ മോദി നിർവഹിക്കും

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് എസ്

അയോധ്യയിൽ രാമ ക്ഷേത്രം നിർമ്മിക്കാൻ കേന്ദ്രം ഓർഡിനൻസ് ഇറക്കണമെന്ന് വിവിധ ഹൈന്ദവ സംഘട നകൾ ആവശ്യപ്പെടുന്നതിനിടെയാണ് സുപ്രീം കോടതി വിഷയം പരിഗണിക്കുന്നത് സൂപ്രീം കോടതി തീരുമാനം വന്ന ശേഷം മാത്രമേ ഓർഡിനൻസിന്റെ കാര്യം പരിഗണിക്കുകയുള്ളുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു

് സംരംഭകത്വ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പുതിയ സംരംഭകരെ ആദരിക്കുകയാണ് ലക്ഷ്യം

അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് പുരസ്കാര തുക

സംസ്ഥ്ഉന്ത്തെ ക്രമസമാധാനത്തെ കുറിച്ച് അടിയന്തര റിപ്പോർട്ട് നൃത്ത്കാൻ ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ശാന്തിയുപ്പ് സ്മാധാനവും ഉറപ്പാക്കണമെന്ന് ഗവർണർ അഭ്യത്ഥിച്ചു

സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിക്ടോറിയ കോളേജിന് ഇന്ന് അവധി നൽകി

അക്രമികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് നിർദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഹർത്താലിലെത്തുടർന്നുായ അക്രമങ്ങളിൽ പൊലീസ് ഉദ്യോഗ സ്ഥർക്കുനേരെയും പോലീസ് വാഹനങ്ങളും കെ എസ്

സി ബസുകളും ഉൾപ്പെടെയുള്ള പൊതുമുതലിനു നേരെയും വ്യാപകമായ ആക്രമണമുണ്ടായി

ഒരു ബസും എട്ടു ജീപ്പും ഉൾപ്പെടെ എട്ടു പോലീസ് വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു

എസ് ആർ ടി

തിരുവനന്ത പുരത്ത് മലയിൻകീഴ് നെടുമങ്ങാട് എന്നിവിടങ്ങളിലും തൃശൂർ വാടാനപ്പള്ളിയിലും കണ്ണൂരിലെ തലശ്ശേരിയിലും കാസർകോട്ടും സംഘർഷാവസ്ഥയുായി അക്രമികളെ അറസ്റ്റ് ചെയ്ത് ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനും പൊതുമുതൽ നശിപ്പിച്ച വരിൽ നിന്ന് നഷ്ടപരിഹാരത്തുക ഈടാക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കാനും ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർ ക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദേശം നൽകീ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കർശനനടപടിയെടുക്കുമെ ന്നും അദ്ദേഹം അറിയിച്ചു

ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്ടും

ശബരിമല പ്രശ്നത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ യു ഡി എഫ് നേതൃയോഗം നാളെ ചേരും

എതിർ സ്ഥാനാർത്ഥിയായ ബി ജെ

കേസിൽ അഹമ്മദ് പട്ടേൽ വിചാരണ ്നേരിടണമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി ഒക്ടോബറിൽ ഉത്തരവിട്ടിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് പട്ടേൽ സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി അറിയിക്കുകയായിരുന്നു

ജെ

പാർലമെന്ററി ബോർഡ് യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

അധ്യക്ഷൻ അമിത് ഷാ ആഭ്യന്തര മുന്ത്രി രാജ്നാഥ് സിങ് ധനകാര്യമന്ത്രി അരുൺ ജയ്റ്റ്ലി തുട്ടിങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അടുത്തിടെ തെരുഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നൂർ സ്സ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞെടുക്കാ്ൻ ബി ജെ

നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയതായി ബി്

മുതിർന്ന നേതാവ് ജെ

നദ്ദ യോഗ ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു

വ്യാപാരികൾക്കിടയിൽ മത്സരം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും അതുവഴി രാജ്യത്തെ ചെറുകിട സംരംഭകരിൽ നിന്നുള്ള ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാ നാകുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തി ലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഗ്രാമീണ കാർഷിക വിദ്യാ ഭ്യാസ ആരോഗ്യരക്ഷ രംഗങ്ങളുടെ മാറ്റത്തിന് നിർമ്മിത ബുദ്ധി സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൊതു ജനങ്ങൾക്ക് സഹായകമായി ശാസ്ത്രത്തെ മാറ്റാൻ ഇന്ത്യൻ ശാസ്ത്രോ ത്സവത്തിന് സാധിച്ചതായും ശ്രീ ഹർഷവർദ്ധൻ കൂട്ടിച്ചേർത്തു

മനശാസ്ത്ര വിദഗ്ദ്ധനായ ഡോ ജിതേന്ദ്ര നാഗ്പാലിന്റെ അധ്യക്ഷതയിലാണ് കർമ സേന രൂപീകരിച്ചിട്ടുള്ളതെന്ന് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം വാർത്താകുറിപ്പിൽ അറിയിച്ചു

ആദ്യദിനം തന്നെ സെഞ്ചറി തികച്ച ഇ ന്ത്യയുടെ ചെതേശ്വർ പുജാര മികച്ച ഫോമിൽ ബാറ്റിങ് തുടരുന്നു

നേരിട്ടുള്ള സെറ്റുകളിൽ കർണാ ടകയെ കീഴടക്കി അടുത്തു മൃത്സരം ഇന്ന് പഞ്ചാബിനോടാണ് കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ് മത്സരത്തിൽ തെലങ്കാനയെ പരാജ യപ്പെടുത്തിയ വനിതാട്ട്രീഫ് ഇന്ന് കർണാകയെ നേരിടും